കെ ശൈലജ

കൂടുതൽ ഉത്പന്നങ്ങൾ നിർമ്മിക്കുന്നതോടൊപ്പം അവക്ക് നല്ല ഗുണനിലവാരം ഉണ്ടാകണമെന്ന താല്പര്യം കൂടി രാജ്യത്തിനുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്ത് പുതിയ ഉത്പന്നങ്ങളും സേവനങ്ങളും അതിവേഗം സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും ആഭ്യന്തര ആഗോള തലത്തിൽ ഇതിനായി കാത്തിരിക്കുന്ന വലിയ വിപണിയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലിങ്ക്ഡ് ഇൻ ൽ ആത്മനിർഭർ ഭാരത് സംബന്ധിച്ച തന്റെ ചിന്തകൾ പങ്കുവെയ്ക്കുകയായിരുന്നു നരേന്ദ്രമോദി ദ്ദേ കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം ബ്രിട്ടണിൽ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണ റിപ്പബ്ലിക്ദിന ആഘോഷ ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ടെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു

ചടങ്ങിന് മുഖ്യാതിഥിയായി തന്നെ ക്ഷണിച്ചതിൽ നന്ദിയുണ്ടെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യവ്യാപകമായി നടത്തിയ ഡ്രൈറണ്ണിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്നും എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഗവൺമെന്റാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി രാജ്യത്തെ നാല് പ്രാഥമിക വാക്സിൻ സ്റ്റോറുകളിലാണ് വാക്സിൻ ആദ്യമായി ശേഖരിക്കുക

ദേദ ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് കൊറോണ വൈറസ് വാക്സിൻ നൽകുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി മുക്താർ അബ്ബാസ് നഖ് വി അറിയിച്ചു

ഇതുവരെ ലഭിച്ച അപേക്ഷകളിൽ അൻപത് ശതമാനവും സ്ത്രീകളാണെന്നും മുംബൈയിൽ ഹജ്ജ് കമ്മിറ്റി യോഗത്തിനു ശേഷം അദ്ദേഹം അറിയിച്ചു ദേദ സംസ്ഥാനത്ത് ജനിതകമാറ്റം വന്ന കൊവിഡ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി കെ

വലിയ ഇളവ് പ്രഖ്യാപിച്ചെങ്കിലും കൊവിഡിനെ പിടിച്ചുകെട്ടാൻ നിയന്ത്രണങ്ങൾ പാലിച്ചേ തീരൂവെന്നും ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു

വിശദാംശങ്ങളുമായി സയ്യിദ് അലി ശിഹാബ് തങ്ങൾ ദേദ കണ്ടെയിൻമെന്റ് സോണുകളിൽ ഉത്സവ പരിപാടികൾ അനുവദിക്കില്ലെന്ന് മാർഗനിർദേശം വ്യക്തമാക്കുന്നു

പുരോഹിതരടക്കം എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കണം എല്ലാവരിലും കോവിഡ് ലക്ഷണങ്ങൾ പരിശോധിക്കണം പങ്കെടുക്കുന്നവരുടെ പേരും ഫോൺ നമ്പരും സൂക്ഷിക്കണം റാലികൾ ഘോഷയാത്രകൾ സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്കും നിർദേശങ്ങൾ ബാധകമാണ് സ്റ്റേജ് പരിപാടികൾ തുറന്ന സ്ഥലത്ത് നടത്തണമെന്നും പൊതു ഭക്ഷണം പാടില്ലെന്നും മാർഗനിർദേശത്തിൽ പറയുന്നു

ഫാമിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ വളർത്തു പക്ഷികളെയും കൊന്ന് കത്തിക്കും ദേദ കോട്ടയം ജില്ലയിലെ വൈക്കം വെച്ചൂരിലും താറാവുകൾ കൂട്ടത്തോടെ ചാകുന്നു വെച്ചൂർ നാലാം വാർഡിൽ എണ്ണായിരത്തിലേറെ താറാവുകൾ ഇതിനകം ചത്തു തിരുവല്ലയിലെ ലാബിലേക്ക് ചത്ത താറാവുകളുടെ സാമ്പിൾ അയച്ചിട്ടുണ്ടെന്നും പരിശോധനാ ഫലം വന്ന ശേഷമേ പക്ഷിപ്പനിയാണോയെന്ന് സ്ഥിരീകരിക്കാനാവൂ എന്നും മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു ദേദ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

ദേദ ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലും ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ

പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്ക് പകരുന്ന പനി ചില സാഹചര്യത്തിൽ മനുഷ്യരിലേക്കും പകരാനിടയുണ്ട്

ഗോവയിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു മുംബൈയുടെ ജയം

സിയെ നേരിടും രുര കോവിഡ് കാലം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ടൂറിസം മേഖലയെ ആണെന്നും ഈ പ്രതിസന്ധി അവസരമാക്കി മാറ്റാനാണ് ടൂറിസം വകുപ്പ് ശ്രമം നടത്തുന്നതെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ടൂറിസം വകുപ്പ് കോഴിക്കോട് നാദാപുരം റോഡിൽ നിർമ്മിച്ച വാഗ്ഭടാനന്ദ പാർക്ക് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലോകത്തെ വിനോദ സഞ്ചാരികളെ ആകർഷിക്കാൻ തരത്തിലാണ് മലബാർ റിവർ ടൂറിസം പദ്ധതി ആവിഷ്ക്കരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ദേദ കോന്നി മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ അടുത്തമാസം കിടത്തി ചികിത്സ ആരംഭിക്കാൻ മന്ത്രി കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു

ഘട്ടംഘട്ടമായി മുന്നൂറും തുടർന്ന് അഞ്ഞൂറും കിടക്കകളുള്ള ആശുപത്രിയായി കോന്നി മെഡിക്കൽ കോളജിനെ മാറ്റും ദേദ സംസ്ഥാനത്തെ ക്രൈസ്തവ സഭകളിലെ വിഭാഗീയതയ്ക്ക് ഉടൻ പരിഹാരം ഉണ്ടാകുമെന്ന് മിസോറം ഗവർണർ പി

പ്രമുഖ സഭാ നേതാക്കളുമായി പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ശ്രീധരൻപിള്ള ചർച്ച നടത്തിയിരുന്നു ചർച്ചകൾ തുടരുമെന്നും ഈമാസം മൂന്നാം വാരത്തോടെ തർക്ക പരിഹാരത്തിലേക്ക് സഭകൾ എത്തിച്ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു തൃശൂർ മുനിപ്പാറ ഭാഗവത ഗ്രാമത്തിൽ ത്രിവേദ ഹെൽത്ത് കെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീധരൻപിള്ള ദ്ദേ വിദേശത്തേക്ക് ഡോളർ കടത്തിയ കേസിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കസ്റ്റംസ് നോട്ടീസ് നൽകി

ഇന്നലെ അയ്യപ്പനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നോട്ടീസ് ലഭിക്കാത്തതിനാൽ ഹാജരായിരുന്നില്ല അതേസമയം ഡോളർ കടത്ത് കേസിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ എം എസ് ഹരികൃഷ്ണനെ കസ്റ്റംസ് ഇന്നലെ രാത്രി വൈകിയും ചോദ്യം ചെയ്തു

സ്വപ്ന സുരേഷ് സരിത്ത് കെ

കേസിലെ രണ്ടാംപ്രതിയായ സന്ദീപ് നായരെ മാപ്പുസാക്ഷിയാക്കി ദ്ദേ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഉടൻ തിരിച്ചെത്തിയേക്കും ഇതിനായി ക്രമീകരണങ്ങൾ വേഗത്തിലാക്കാൻ വിമാനത്താവളത്തിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായി

ദേദ തിരൂർ പടിഞ്ഞാറക്കരയിൽ ഭാരതപ്പുഴയും അറബിക്കടലും സംഗമിക്കുന്ന അഴിമുഖത്ത് ഹൌറ മോഡൽ തൂക്കുപാലം നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഡോ

ഭൂമിയ്ക്ക് ന്യായവില ലഭ്യമാക്കിയാൽ സ്ഥലം വിട്ടുനൽകാൻ തയ്യാറാണെന്ന് അവർ മന്ത്രിയെ അറിയിച്ചു ഇതുപ്രകാരം രണ്ടാഴ്ചക്കകം സർവ്വേ നടത്തി നഷ്ടപരിഹാരത്തുക തീരുമാനിക്കും ദേദ ഉദ്ഘാടനം നടത്താത്ത വൈറ്റില മേൽപ്പാലത്തിലൂടെ ബാരിക്കേഡുകൾ നീക്കി അജ്ഞാതർ വാഹനങ്ങൾ കടത്തിവിട്ടു

വാഹനങ്ങളെല്ലാം അരമണിക്കൂറിലധികം പാലത്തിൽ കുടുങ്ങിക്കിടന്നു പാലം തുറന്നു കൊടുത്തവരെ കണ്ടെത്താൻ പൊലീസ് നടപടി ആരംഭിച്ചു

കോവിഡിനെ തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു

ദ്ദേ പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിന്റെ ജാമ്യഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും